പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള സേവാ സപ്ത് വാരാചരണത്തിന് തുടക്കമായി

ആസിയൻ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി ഇന്ത്യയിലെ ഐ ഐ

കേരളത്തിൽ ഓണം വാരാഘോഷം തിങ്കളാഴ്ച സമാപിക്കും

ബംഗ്ലാദേശിനെ അഞ്ച് റണ്ണിന് തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ ജയം

യിലെ നികുതി തിരികെ നൽകുന്നതിനായി പൂർണമായ ഇലക്ട്രോണിക് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ന്യൂഡൽഹിയിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ഈ മാസം അവസാനത്തോടെ ഈ പദ്ധതി നിലവിൽവരും നികുതി പണം തിരികെ നൽകുന്ന സംവിധാനം വേഗത്തിലാക്കാൻ ഇത് സഹായകമാകുമെന്ന് മന്ത്രി പറഞ്ഞു

കയറ്റുമതി രംഗത്തിന് ഉൌർജ്ജം പകരുന്നതിനായി ഇന്ത്യ പല രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ദുബായ് ഷോപിംഗ് ഫെസ്റ്റിവലിന്റെ മാതൃകയിൽ കരകൌശലവസ്തുക്കൾ യോഗ വിനോദസ്യഞ്ചാരം ടെക്സ്റ്റൈയിൽ തുകൽ വ്യാപാരം എന്നീ മേഖലകളിൽ ക്ക്ത്യയിലും ഷോപിംഗ് ഫെസ്റ്റിവലുകൾ സംഘടിപ്പിക്കുമെന്നും മത്തി പറഞ്ഞു

ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉദ്ഘാടനം നിർവഹിച്ചു കൂടുതൽ വിവരങ്ങളുമായി ഷീജ ഗണേശ് വോയ്സ് ഹിന്ദിയും മറ്റ് ഭാഷകളും ഒരുമിച്ച് വളർന്നു വരേണ്ടവയാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു

രാജ്യത്തെയാകമാനം ഒരുമിച്ച് നിർത്താൻ ഹിന്ദി ഭാഷയ്ക്ക് കഴിയുമെന്നും ശ്രീ

രാജ്യത്താകമാനമുള്ള ജനങ്ങളുടെ മുന്നേറ്റമാണ് ഹിന്ദി ഭാഷ സൂചിപ്പിക്കുന്നതെന്നും വൈവിധ്യവും ഭാഷഭേദവുമാണ് ഇന്ത്യയുടെ കരുത്തെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു നീതിന്യായം ശാസ്ത്ര സാങ്കേതികം വൈദ്യം തുടങ്ങി എല്ലാ മേഖലകളിലും ഹിന്ദി ഭാഷ ഉപയോഗിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ ഗവൺമെന്റ് തുടരുമെന്നും ജനങ്ങൾ കൂടുതൽ ഹിന്ദി ഉപയോഗിച്ച് മഹാത്മാഗാന്ധിയുടെയും സർദാർ വല്ലഭായി പട്ടേലിന്റെയും സ്ഥപ്നം സാഷാത്കരിക്കാൻ പരിശ്രമിക്കണമെന്നും ശ്രീ

ആഭ്യന്തര സഹമന്ത്രിമാരായ നിത്യാനന്ദ് റായ് ജി കൃഷ്ണറെഡ്ഡി എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

പുനരുജ്ജീവനത്തിനുമായാണ് ലേല്ത്തിലൂടെ ലഭിക്കുന്ന തുക ഉപയോഗിക്കുന്നതെന്ന് ഉദ്ഘാടന്നിപ്പേള്യിൽ ശ്രീ പട്ടേൽ പറഞ്ഞു

ഒക്ടോബർ വരെ ന ഓൺലൈനായുളള ലേല്പർതുടരുമെന്ന് ആകാശവാണി ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു

ശുചീകരണ യജ്ഞം എയിംസിലെ രോഗികൾക്ക് പഴങ്ങൾ വിതരണം ചെയ്യൽ തുടങ്ങിയ പരിപാടികളാണ് ഒരാഴ്ചക്കാലം ബി ജെ

നടപ്പാക്കുന്നത് കൂടാതെ ബി ജെ

പ്രവർത്തകർ രക്തദാന പരിപാടികളിൽ ഏർപ്പെടുകയും അനാഥശാലകൾ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തുകയും വിവിധ കേന്ദ്രങ്ങളിൽ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ചെയ്യും സ്വച്ഛതാ അഭിയാൻ ജലസംരക്ഷണം ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കുന്ന പ്പാസ്റ്റിക് ഉല്പന്നങ്ങൾ ഉപേക്ഷിക്കുക എന്നീ മൂന്നു സന്ദേശങ്ങൾ ജനങ്ങളിലെത്തിക്കുവാൻ ഒരാഴ്ചക്കാലം ബി ജെ

പ്രവർത്തകർ പരിശ്രമിക്കും

പൌരത്വ ലിസ്റ്റിൽ ഇടം നേടുന്നതിനുവേണ്ടി അപേക്ഷ സമർപ്പിച്ച രസീത് ഉപയോഗിച്ച് അപേക്ഷകർക്ക് ലിസ്റ്റ് പരിശോധിക്കുന്നതാണ് അസമിൽ പൌരത്വം അംഗീകരിക്കപ്പെട്ടവരുടെ പേരുകളും ൂ ഒഴിവാക്കപ്പെട്ട ശേഷം അപ്പീൽ നൽകി അന്തിമ തീരുമാനം ആക്ടാത്തവരുടെ പേരുകളും ലിസ്റ്റിൽ ലഭ്യമാണ്

മൂന്ന് കമ്മിറ്റികളിൽ ഭരണകക്ഷിയായ ബി ജെ

കമ്മിറ്റികളുടെ രൂപീകരണത്തിനും അധ്യക്ഷന്മാരുടെ നിയമനത്തിനും രാജ്യസഭാ അധ്യക്ഷൻ വെങ്കയ്യ നായിഡു ഇന്നലെ അംഗീകാരം നൽകി

ഐ

ഇതിനായി ന്യൂഡൽഹി ഐ ഐ ടി യിൽ പ്രത്യേക അഡ്മിഷൻ പോർട്ടൽ ആരംഭിക്കും വിദേശകാര്യ മന്ത്രി എസ് ജയ്ശങ്കർ മാനവശേഷി വിഭവശേഷി വകുപ്പ് മന്ത്രി രമേഷ് പൊഖ്രിയാൽ നിഷാങ്ക് എന്നിവർ ചേർന്ന് തിങ്കളാഴ്ച പരിപാടി ഉദ്ഘാടനം ചെയ്യും

ഐ

കളുടെ ഡയറക്ടർമാർ യു ജി സി ചെയർമാൻ നിതി ആയോഗ് വൈസ് ചെയർമാൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും

മേഖലയിലെ സാധാരണ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പാക് സേന പ്രകോപനം കൂടാതെ വെടിയുതിർക്കുകിയായിരുന്നുവെന്ന് കരസേന ഡെപ്യൂട്ടി കമ്മിഷണർ പറഞ്ഞു രാവിലെ പത്ത് മണിയോടെ ബാലാകോട്ട് മൻകോട്ട് മേഖലയില്ലേക്ക് പാകിസ്ഥാൻ സൈന്യം വെടിവയ്പ്പും ഷെല്ലാക്രമണവും നടത്തി ഇന്ത്യൻ സേന ശക്തമായ പ്രത്യാക്രമണവും നടത്തിയതായി റിപ്പോർട്ട് ഉണ്ട്

പ്രദേശവാസികൾ ജാഗ്രത പുലർത്തണമെന്ന് സുരക്ഷാസേനാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്

കാർഗിൽ ലേ ജില്ലകളിൽ നാല് ദിവസത്തെ സന്ദർശനത്തിനാണ് ശ്രീമതി ജോഷി എത്തിയത് ലഡാക്കിലെ ആകാശവാണി ദൂരദർശൻ അടിസ്ഥാന സൌകര്യങ്ങളും മാനവശേഷിയും ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഇരുവരും ചർച്ച നടത്തി മേഖലയിൽ ് പ്രാദേശിക ഭാഷയിലെ വാർത്തയും മറ്റു പരിപാടികളും പ്രക്ഷേപണം ചെയ്യുന്നതിനെ കുറിച്ചും ഇരുവരും ചർച്ച നടത്തി

താലിബാനുമായി യാതൊരു ചർച്ചയ്ക്കും ഒരുക്കമല്ലെന്ന് യു

പാർട്ടി ജനറൽ സെക്രട്ടറി എം

പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് വേണ്ടി ഇരു പാർട്ടികളും തമ്മിൽ കൂട്ടുക്കെട്ടുണ്ടാക്കാൻ ചർച്ച നടക്കുന്നതിനിടയിലാണ് അഞ്ച് എം

മാർ രജപക്സെയുടെ പാർട്ടിയിൽ ചേർന്നത്

വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ ഗ്രേറ്റ് അബാകോ ദ്വീപുകളിലേയ്ക്ക് കൊടുങ്കാറ്റ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് മിയാമി ആസ്ഥാനമായ നാഷണൽ ഹരികെയ്ൻ സെന്റർ അറിയിച്ചു

വൈകിട്ട് അഞ്ചിന് വെള്ളയമ്പലം കെൽട്രോൺ ജംഗ്ഷനിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാന ഘോഷയാത്ര ഫ്ളാഗ് ഓഫ്ച്ചെയ്യും

ഇന്ത്യയുടെയും ക്ട്രേളത്തിന്റെയും സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന നിരവധി ് നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയ്ക്ക് മിഴിവേകും

റണ്ണൊഴുക്ക് കുറഞ്ഞ ഫൈനൽ മത്സരത്തിൽ ബംഗ്ലാദേശിനെ അഞ്ച് റണ്ണിന് പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം സ്വന്തമാക്കിയത്

ഏറെ നാളായി രോഗബാധിതയായി ചികിത്സയിലായിരുന്ന അവർ ഇന്ന് രാവിലെയാണ് അന്തരിച്ചത്